ഡി എഫ് മുന്നേറ്റം

ഡി എഫിന് ലീഡ്

എം മണി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവർ മുന്നിൽ മഞ്ചേശ്വരത്തും ക്കോന്നിയിലും സുരേന്ദ്രൻ മൂന്നാമത്

തെരഞ്ഞെടുപ്പിൽ ഡി

മുന്നേറ്റം പുതുച്ചേരിയിലും അസമിലും എൻഡിഎ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും മുന്നേറുന്നു

ഡി എഫ് മുന്നേറ്റം

ഡി

ഡി

നേമം പാലക്കാട് മണ്ഡലങ്ങളിലാണ് എൻ ഡി

എക്സിറ്റ് പോളുകളും പ്രീ പോൾ സർവേകളും അക്ഷരാർത്ഥത്തിൽ ശ രിവെക്കുന്നതാണ് പുറത്തുവരുന്ന ഫലസൂചനകളെങ്കിലും ലീഡ് നില മാറി മറിയുകയാണ്

ഡി

ജെ പിക്ക് ഒരു സീറ്റും പി

ജോർജിന് ഒരു സീറ്റുമാണ് മുൻ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്

ഡി എഫ് ലീഡ് ചെയ്യുന്നത് കോവളം സീറ്റിലാണ് യു ഡി

നേമത്തെ ബി ജെ

ഡി

ഡി എഫിനാണ് ആധിപത്യം

ഡി എഫാണ് ലീഡ് ചെയ്യുന്നത്

ഡി

വിശദവിവരങ്ങളുമായി വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് ആകാശവാണി ജില്ലാ പ്രതിനിധി നീരജ് ലാൽ ചേരുന്നു

എൽഎ മെഴ്സിക്കു ട്ടിയമ്മയുടെ സ്ഥിതിയെന്താണ്

ശക്തമായ ത്രികോണ മൽസരം നടന്ന കോന്നിയിൽ സിറ്റിംഗ് എംഎൽഎ കെയു

ഡി

ഹരിപ്പാട് മണ്ഡലത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല് സി

സജിലാലി നെക്കാൾ ബഹുദൂരം മുന്നിലാണ് അരൂരിൽ ഷാനിമോള ഉസ്മാൻ മുന്നിൽ

എഫും രണ്ട് സീറ്റുകളിൽ യു ഡി എഫും ലീഡ് ചെയ്യുന്നു

ആന്റണി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അധ്യക്ഷൻ പി

എഫും യുഡിഎഫും ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ് ഇരു മുന്നണികളും ഏഴ് സീറ്റുകളിൽ ്വീതം ലീഡ് ചെയ്യുന്നു

ഡി

ഡി

ഭരിത തൃശൂരിലും ഇടത് തരംഗം പ്രകടമാകുകയാണ്

ജെ പിക്ക് ഏറെ പ്രതീക്ഷ ഉണ്ടായിരുന്ന തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ ലീഡ് നില ഇപ്പോൾ എന്താണ് ബി ഡി ജെ

ഡി

വടകരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആർ

ബാലുശ്ശേരിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി നടൻ ധർമജൻ ബോൾഗാട്ടി മുന്നാം സ്ഥാനത്താണ് മന്ത്രി ടി

രാമകൃഷ്ണൻ

ശശീന്ദ്രൻ എന്നിവരും മുന്നിൽ മുഹമ്മദ് റിയാസ് തോട്ടത്തിൽ രവീന്ദ്രൻ കാരാട്ട് റസാഖ് എന്നിവരും ലീഡ് ചെയ്യുന്നു വയനാട് വയനാട്ടിലെ മൂന്ന് മണ്ഡലങ്ങളിൽ രണ്ടിടത്തു യു

മാനന്തവാടിയിൽ സിറ്റിംഗ് എം

എ ഒ

സിദ്ദിഖ് കൽപ്പറ്റയിൽ മുന്നിലാണ്

മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്തും രാമചന്ദ്രൻ കടന്നപ്പള്ളി കണ്ണൂരിലും മട്ടന്നൂരിൽ കെ

ശൈലജയും കൂത്തുപ്പറമ്പിൽ കെ

മോഹനന്നും തലശ്ശേരിയിൽ എ

വിശദവിവരങ്ങളുമായി വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് ന മ്മോടൊപ്പം ചേരുന്നു ആകാശവാണി ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു സുരേഷ് ഫലസൂചനയനുസരിച്ച് വേങ്ങരയിൽ മുസ്ലിംലീഗ് ദേശീ യ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് തന്നെയാണോ ഇത്തവണയും വിജയം അതോടൊപ്പം മുൻമന്ത്രി കെ

പശ്ചിമ ബംഗാൾ വാശിയേറിയ പോരാട്ടം നടന്ന പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ്റ്റിന് മുന്നേറ്റം

ജെ